പൊതുവിദ്യാലയങ്ങളിലെ അടിസ്ഥാന സൌകര്യങ്ങൾ വിലയി രുത്താൻ അടിയന്തര ഓഡിറ്റ് നടത്തണമെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ കേരളത്തിലേക്ക് നിക്ഷേപം ആകർഷിക്കാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിതല സംഘം നാളെ വിദേശ സന്ദർശനത്തിന് പുറപ്പെടും

ഇന്ത്യ ബംഗ്ലാദേശ് രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് ഉച്ചക്ക് കൊൽക്ക ത്തയിൽ ആരംഭിക്കും ങ്ങ ൽ സുൽത്താൻ ബത്തേരി സർവജന ഹയർസെക്കന്ററി സ്കൂളിൽ വിദ്യാർത്ഥിനി പാമ്പ് കടിയേറ്റ് മരിച്ച സംഭവം വളരെ ഗൌരവത്തോ ടെയാണ് കാണുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയി ച്ചു മരണം അത്യന്തം ദുഖകരമാണെന്നും സംഭവത്തിൽ അനാസ്ഥ കാട്ടിയവർക്കെതിരെ നടപടി ഉറപ്പാക്കാൻ ഇടപെടുമെന്നും മുഖ്യമന്ത്രി ഫെയ്സ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു ഇത്തരം സന്ദർഭങ്ങളിൽ എങ്ങനെ പ്രതികരിക്കണമെന്നും എന്തൊക്കെ ചെയ്യണമെന്നും പഠി പ്പിക്കേണ്ടവരാണ് അധ്യാപകർ എന്നാൽ ആവശ്യപ്പെട്ടിട്ടും കൂട്ടിയെ ആശുപത്രിയിൽ എത്തിക്കാൻ അധ്യാപകർ തയാറായില്ലെന്നാണ് കുട്ടി കൾ പറയുന്നതെന്ന് മുഖ്യമന്ത്രി വിലയിരുത്തി അതിനിടെ സ്കൂൾ അധികൃതർക്കെതിരെ പ്രതിഷേധം കൂടുതൽ ശക്തമായി സംഭവം അന്വേഷിക്കാനെത്തിയ ഡിഡിഇ യെ പ്രതി ഷേധക്കാർ തടഞ്ഞു വിഷയത്തിൽ അധ്യാപകരുടെയും പൊതുവിദ്യാഭ്യാസ വകുപ്പി ന്റെയും അനാസ്ഥയിൽ പ്രതിഷേധിച്ചും സമഗ്രാന്വേഷണം ആവശ്യ പ്പെട്ടും കെഎസ്യു വയനാട് ജില്ലയിൽ ഇന്ന് വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തു വിവിധ യുവജന സംഘടനകൾ ഇന്ന് പ്രതിഷേധ പരിപാടികൾ നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് പൊതുവിദ്യാലയങ്ങളിലെ അടിസ്ഥാന സൌകരൃങ്ങൾ വിലയി രുത്താൻ അടിയന്തര ഓഡിറ്റിന് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് തയാ റാകണമെന്ന് കേന്ദ്ര സഹമന്ത്രി വി

പശ്ചാ ത്തല സൌകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ അടിയന്തര നടപടി വേണ മെന്നും അദ്ദേഹം ഡൽഹിയിൽ നിർദേശിച്ചു ക്ലാസ് മുറിയിൽ പാമ്പു കടിയേറ്റ് മരിച്ച ഷഹല ഷെറിന്റെ ദാരുണ മരണം മുഖ്യമന്ത്രിയേയോ മന്ത്രിമാരേയോ ഉലച്ചിട്ടില്ലെന്ന തരത്തിലാണ് അവരുടെ പ്രതികരണ മെന്ന് മുരളീധരൻ പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി അധ്യാപകരെ പഴിചാരുകയും അനാസ്ഥ കാണിച്ചവർക്കെതിരെ നടപടിയെടുക്കു മെന്നും പതിവ് പല്ലവി ആവർത്തിക്കുകയാണ് മുഖ്യമന്ത്രിയെന്നും അദ്ദേഹം പറഞ്ഞു ഷഹലയുടെ കൂടുംബത്തിന്റെ ദുഖത്തിൽ മന സുകൊണ്ട് പങ്കുചേരുന്നതായും കേന്ദ്രമന്ത്രി അറിയിച്ചു

ഷജിലിനെ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ സസ്പെൻഡ് ചെയ്തു മറ്റ് അധ്യാപകർക്ക് മെമ്മോ നൽകുമെന്ന് ഡിഡിഇ അറി യിച്ചു ഷഹല ഷെറിന് ചികിത്സ ഉറപ്പാക്കാത്ത ബത്തേരി താലൂക്ക് ആശു പത്രിയിലെ ഡോക്ടറെ സസ്പെൻഡ് ചെയ്യാൻ മന്ത്രി കെ

സംഭവത്തിൽ സമ ഗ്രമായ അന്വേഷണം നടത്തുമെന്നും മന്ത്രി അറിയിച്ചു വിദ്യാർത്ഥിനി പാമ്പുകടിയേറ്റ് മരിച്ച സംഭവത്തിൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു സംസ്ഥാന പൊലീസ് മേധാവി ജില്ലാ കലക്ടർ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ എന്നിവരോട് കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു അടുത്ത അധ്യയന വർഷാരംഭ ത്തിന് മുമ്പ് സ്കൂൾ പരിസരങ്ങളിലെ അപകട സാഹചര്യങ്ങൾ ഒഴി വാക്കണെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടു ക്ലാസ് മുറിയിൽ പാമ്പുകടിയേറ്റ് വിദ്യാർത്ഥിനി മരിച്ച സാഹച രൃത്തിൽ വയനാട്ടിലെ പൊതും വിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് കർമ്മ പദ്ധതി ആവിഷ്ക്കരിക്കണമെന്ന് ആവശ്യപ്പെട്ട് വയനാട് എംപി രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രി പിണ റായി വിജയന് കത്തയച്ചു മരിച്ച ഷെഹല ഷെറിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നും രാഹുൽ ഗാന്ധി കത്തിൽ ആവ ശ്യപ്പെട്ടു പൊതുവിദ്യാലയങ്ങളിലെ ക്ലാസ് മുറികൾ നന്നാക്കാൻ ഗവൺമെന്റ് അടിയന്തര നടപടിയെടുക്കണമെന്ന് പ്രതിപക്ഷ ഉപനേ താവ് ഡോ

മുനീർ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു

ക്ലാസ് മുറികളിൽ വിദ്യാർത്ഥികൾ നിർബന്ധമായും ചെരുപ്പ് ധരിച്ചിരിക്കണമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് കേരളത്തിലേക്ക് നിക്ഷേപം ആകർഷിക്കാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും ഉൾപ്പെട്ട സംഘം നാളെ വിദേശ സന്ദർശനത്തിന് പുറപ്പെടും ജപ്പാൻ ദക്ഷിണകൊറി യ എന്നീ രാജൃങ്ങൾ സംഘം സന്ദർശിക്കും മന്ത്രിമാരായ ഇ

ശശീന്ദ്രൻ എന്നിവർക്ക് പുറമെ ചീഫ് സെക്രട്ടറി ടോം ജോസ് ആസൂത്രണ ബോർഡ് അംഗം ഡോ

രാമചന്ദ്രൻ എന്നിവർ സംഘത്തിലുണ്ട് സംസ്ഥാന പൊലീസിന്റെ ഏഴ് ബറ്റാലിയനുകളിൽ സിവിൽ പൊലീസ് ഓഫീസർമാരുടെ നിയമനശുപാർശാ വിതരണം ആരംഭി ച്ചു പിഎസ്സി ഓഫീസുകളിൽ എത്തുന്ന ഉദ്യോഗാർത്ഥികളുടെ വിര ലടയാളം യന്ത്രസഹായത്തോടെ പരിശോധിച്ചശേഷമാണ് ശുപാർശ കൈമാറുന്നത്

സക്കീർ അറിയിച്ചു

ആദൃഘട്ടത്തിൽ തിരുവനന്തപുരം എറണാ കുളം ജില്ലകളിലാണ് പദ്ധതി നടപ്പാക്കുന്നത് ഫോൺ റീചാർജ്ജിങ്ങ് ബില്ലടക്കൽ തുടങ്ങിയ സേവനങ്ങൾ ആരംഭിക്കാനും ആലോചനയു ണ്ടെന്ന് മന്ത്രി ആലപ്പുഴയിൽ വെളിപ്പെടുത്തി വാളയാർ പെൺകുട്ടികളുടെ ദുരൂഹ മരണത്തിൽ സിബിഐ അന്വേഷണം ഒഴികെ മറ്റൊരന്വേഷണത്തിനും പ്രസക്തിയില്ലെന്ന് കെപിസിസി വർക്കിങ്ങ് പ്രസിഡന്റ് കൊടിക്കുന്നിൽ സുരേഷ് എംപി പ്രസ്താവനയിൽ അറിയിച്ചു ഇടത് ഗവൺമെന്റ് നടത്തുന്ന ഏത ന്വേഷണവും പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയാണെന്ന് കൊടി ക്കുന്നിൽ കുറ്റപ്പെടുത്തി

മുൻ ജില്ലാ ജഡ്ജി പി

ഹനീഫക്കാണ് അന്വേഷണ ചുമത ല

ഇന്ത്യ ബംഗ്ലാദേശ് രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് ഉച്ചക്ക് കൊൽക്കത്ത ഈഡൻഗാർഡൻസ് സ്റ്റേഡിയത്തിൽ തുടങ്ങും പകൽ രാത്രി മത്സ രത്തിൽ പിങ്ക് ബോൾ ഉപയോഗിച്ചായിരിക്കും ടീമുകൾ കളിക്കുന്ന ത് ഇൻഡോറിലെ ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്കായിരുന്നു വിജ യം ഏഴാമത് പ്രസിഡന്റ് സ് ട്രോഫി ജലോത്സവം നാളെ അഷ്ടമുടി ക്കായലിൽ ഗവൺമെന്റ് സംഘടിപ്പിച്ച ചാമ്പ്യൻസ് ബോട്ട്ലീഗ് ഫൈനൽ എന്ന നിലയിലാണ് ഇത്തവണത്തെ പ്രസിഡന്റ് ട്രോഫി ജലോത്സവം ചെറുവള്ളങ്ങളുടെ മത്സരങ്ങളും സാംസ്കാരിക പരി പാടികളും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട് നാഗേഷ് ട്രോഫി ബ്ലൈൻഡ് ക്രിക്കറ്റ് ദേശീയ ചാമ്പ്യൻഷിപ്പിന്റെ ഗ്രൂപ്പ് ബി ആദ്യ മത്സരത്തിൽ കേരളം ജാർഖണ്ഡിനെ ഏഴ് വിക്ക റ്റിന് തോൽപ്പിച്ചു എറണാകുളം സെന്റ് പോൾ സ്റ്റേഡിയത്തിൽ രണ്ടാം മത്സരത്തിൽ കേരളം ഇന്ന് മഹാരാഷ്ട്രയെ നേരിടും കാഞ്ഞങ്ങാട്ട് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായി ഇന്ന് മീഡിയാ കമ്മറ്റി മാധൃമ സെമിനാർ നടത്തും സ്കൂൾ കലോ ത്സവം ഇന്നലെ ഇന്ന് നാളെ എന്ന വിഷയത്തിൽ നടത്തുന്ന സെമി നാർ രാജ്മോഹൻ ഉണ്ണിത്താൻ എംപി ഉദ്ഘാടനം ചെയ്യും കോഴിക്കോട് റവന്യു ജില്ലാ സ്കൂൾ കലോത്സവം ഇന്ന് സമാപി ക്കും ഹയർ സെക്കന്റി ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ കോഴിക്കോട് സിറ്റി ഉപജില്ലയാണ് മുന്നിൽ

വൈകീട്ട് സമാപന സമ്മേളനത്തിൽ മന്ത്രി ടി

രാമകൃഷ്ണൻ ട്രോഫികൾ സമ്മാനിക്കും ഇടുക്കി റവന്യു ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ കട്ടപ്പന ഓവ റോൾ ചാമ്പ്യൻമാരായി ഹൈസ്കൂൾ വിഭാഗത്തിൽ തൊടുപുഴ ഉപ ജില്ലക്കാണ് ഒന്നാം സ്ഥാനം കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവലത്തിൽ കണ്ണൂർ നോർത്ത് ഉപജില്ല ഹൈസ്കൂൾ വിഭാഗത്തിലും ഹയർ സെക്കന്ററി വിഭാഗത്തിലും മുന്നേറുന്നു യുപി വിഭാഗത്തിൽ തലശ്ശേരി നോർത്ത് ഉപജില്ലയാണ് മുന്നിൽ കലോത്സവം നാളെ സമാപിക്കും വിവരാവകാശ അപേക്ഷകളിലെ മറുപടികൾ വ്യക്തവും പൂർണവും ആക്കണമെന്ന് സംസ്ഥാന മുഖൃ വിവരാവകാശ കമ്മീ ഷണർ വിൻസൻ

ഒരു വിഷയത്തിൽ മറ്റൊ രപേക്ഷയുമായി വരാൻ സാഹചര്യം ഒരുക്കരുതെന്ന് അദ്ദേഹം കോഴി ക്കോട് ജില്ലയിലെ വിവരാവകാശ ഓഫീസർമാർക്കും അപ്പലേറ്റ് ഉദ്യോ ഗസ്ഥർക്കുമായി സംഘടിപ്പിച്ച ശിൽപ്പശാലയിൽ പറഞ്ഞു

ബുധൻ വ്യാഴം ദിവസങ്ങളിലാണ് സർവ്വീസ് കുമരകം മെത്രാൻ കായലിൽ കൃഷിവകുപ്പിന്റെ മേൽനോട്ടത്തിൽ നാലാം തവണയും കൃഷിയിറക്കുന്നു വിത്ത് വിത രാവിലെ മന്ത്രി വി

സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും കോട്ടയം ജില്ലയിലെ പത്ത് പഞ്ചായത്തുകളെ തരിശ് രഹിതമാക്കാനും കൃഷിവകുപ്പ് പദ്ധതി നടപ്പാക്കും ഫീൽഡ് ഔട്ട്റീച്ച് ബ്യൂറോ തൃശൂർ യൂണിറ്റ് കൊടുങ്ങല്ലൂരിൽ നടത്തുന്ന പൊതുജന ബോധവൽക്കരണ പരിപാടിയിൽ ഇന്ന് തപാൽ വകുപ്പിന്റെ സേവനങ്ങൾ വിശദീകരിക്കും

മുന്നാക്ക വിഭാഗങ്ങളിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കു ന്നവരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ സാമ്പത്തിക സർവ്വെ സംഘടിപ്പി ക്കുന്നതിന് മുന്നാക്ക കമ്മീഷൻ തീരുമാനിച്ചു ആലപ്പുഴയിൽ നട ത്തിയ സിറ്റിങ്ങിലാണ് തീരുമാനം മത്സ്യ വിപണന മേഖലയിലെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ മുൻനിർത്തി മത്സ്യഫെഡ് ദേശീയ പുരസ്കാരം നേടി ഹാച്ചറിക ളിലെ മികവിന് രണ്ടാം സ്ഥാനവും മികച്ച മത്സൃത്തൊഴിലാളി സംഘത്തിന് ഒന്നാംസ്ഥാനവും കേരളം സ്വന്തമാക്കി ലോകമത്സ്യ ത്തൊഴിലാളി ദിനത്തിൽ ന്യൂഡൽഹിയിൽ സംഘട്ടിപ്പിച്ച ചടങ്ങിൽ കേന്ദ്രമന്ത്രി ഗിരിരാജ് സിങ്ങ് അവാർഡുകൾ സമ്മാനിച്ചു കോഴിക്കോട് കൂടത്തായി കൊലപാതക പരമ്പരയിലെ മുഖ്യപ്രതി ജോളിയെ അടുത്ത ചൊവ്വാഴ്ച്ച വൈകീട്ട് വരെ പൊലീസ് കസ്റ്റഡി യിൽ വിട്ടു ആൽഫൈൻ കൊലക്കേസിൽ അറസ്റ്റിലായ മൂന്നാം പ്രതി പ്രജികുമാറിനെ വൈകീട്ട് നാലൂവരെയും കോടതി പൊലീസ് കസ്റ്റ ഡിയിൽ വിട്ടുകൊടുത്തു